കൊല്ലം ബൈപ്പാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു

്അഴിമതിയുടെ കാര്യത്തിൽ എൽഡിഎഫും യുഡിഎഫും ഒറ്റക്കെട്ടെന്നും നരേന്ദ്രമോദി

ആശ്രമം മൈതാനത്തെ വേദിയിൽ നടന്ന ചടങ്ങിൽ ഭദ്രദീപം കൊളുത്തി ശിലാഫലകം അനാച്ഛാദനം ച്ചെയ്താണ് പ്രധാനമന്ത്രി ബൈപാസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ക്ലബെപാസിന്റെ മൂന്നാം ഘട്ടമായി പൂർത്തിയായ കല്ലുംതാഴ്ച്ച് ക്ക്വനാട് ഭാഗം ഇതോടെ പൂർണമായി ഗതാഗതത്തിന് തുദ്ന്നു നിൽകി ഗ്രാമങ്ങളിലെ അടിസ്ഥാനസൌകരൃവികസ്മകൃത്തിന് കേന്ദ്രം മുന്തിയ പരിഗണനയാണ് നൽക്ടൂന്ന്ത്തെന്ന് പ്രധാനമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു

കേരളത്തിന്റെ പുനർനിർമാണത്തിന് കഠിനപ്രയത്നം ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി ഓർമിപ്പിച്ചു ദേശീയപാതകൾ ഗ്രാമീണ റോഡുകളുമായി ബന്ധിപ്പിക്കുന്ന പദ്ധതികൾ രാജ്യത്ത് വളരെയധികം നടപ്പാക്കിവരുന്നു പദ്ധതികൾ അനന്തമായി വൈകിപ്പോകുന്നത് സാധാരണക്കാരോട് ചെയ്യുന്ന കുറ്റമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സാധാരണക്കാർക്ക് വളരെ പ്രയോജനപ്പെടുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതി കേരളത്തിൽ നടപ്പാക്കേണ്ടതാണെന്നും പ്രധാനമന്ത്രി പരാമർശിച്ചു സഹോദരീ സഹോദരന്മാരെ എന്ന് മലയാളത്തിൽ അഭിസംബോധന ചെയ്ത് ആരംഭിച്ച പ്രസംഗം കൊല്ലം കണ്ടവനില്ലം വേണ്ട എന്നത് തനിക്കും അനുഭവപ്പെടുന്നു കൊല്ലത്തെ ജനങ്ങളുടെ സ്നേഹത്തിനും അടുപ്പത്തിനും നന്ദി പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചത് വൻജനാവലിയാണ് ഉദ്ഘാടനത്തിന് സാക്ഷിയാകാൻ എത്തിയത്

ഗവർണർ ജസ്റ്റിസ് പി സദാശിവം കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം എംപിമാരായ എൻ

പ്രേമചന്ദ്രൻ സുരേഷ് ഗോപി വി മുരളീധരൻ കെ സോമപ്രസാദ് മന്ത്രി കെ രാജു ജെ മേഴ്സിക്കുട്ടിയമ്മ എംഎൽഎമാരായ ഒ രാജഗോപാൽ എൻ വിജയൻപിള്ള മുകേഷ് തുടങ്ങിയവരും വേദി പങ്കിട്ടു

എൽഡിഎഫിന്റെയും യുഡിഎഫിന്റെയും പരിഹാസങ്ങൾ ബിജെപി പ്രവർത്തകരെ ബാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു

ശബരിമല വിഷയത്തിൽ എൽഡിഎഫ് ഗവൺമെന്റിന്റെ നിലപാട് ഏറ്റവും വലിയ പാപമാണെന്ന് ചരിത്രം വിലയിരുത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ലിംഗ നീതിയുടെ കാര്യത്തിൽ വീരവാദം മുഴക്കുന്ന യുഡിഏഫും എൽഡിഎഫും മുത്തലാഖ് നിരോധനത്തെ എതിർക്കുക്കിട്ട്ണെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി

തുടർന്ന് സ്വദേശി ദർശൻ പദ്ധതിയുടെ കീഴിൽ പൂർത്തിയാക്കിയ നിർമാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവ്വഹി ക്കും ക്ഷേത്രത്തിന്റെ കിഴക്കേനടയിൽ സ്ഥാപിച്ച ശിലാഫ ലകവും ശ്രീ നരേന്ദ്രമോദി അനാവരണം ചെയ്യും

പൈതൃക നടപ്പാതയുടെ നിർമാണം പത്മതീർത്ഥക്കുളത്തിന്റെ നവീകരണം വൈദ്യുതീകരണം സുരക്ഷാ ഉപകരണങ്ങൾ തുടങ്ങിയവ പദ്ധതി യിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്

സോനാപൂരിൽ കേന്ദ്രീയ വിദ്യാലയത്തിന്റെ പുതിയ മന്ദിരത്തിനും അദ്ദേഹം തറക്കല്ലിട്ടു ബൌദ് ജില്ലയിലെ നിള മാധവ് സിദ്ദേശ്വർ ക്ഷേത്രങ്ങളുടെ നവീകരണ പ്രവൃത്തിയ്ക്കും പ്രധാനമന്ത്രി തുടക്കമിട്ടു പുതിയ പദ്ധതികൾ ഒഡീഷയുടെ മാത്രമല്ല ഇന്ത്യയുടെ കിഴക്കൻ മേഖലയുടെ വളർച്ചയും സാധൃമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു

ഡിഡി സയൻസ് ഇന്ത്യാ സയൻസ് എന്നീ പേരിൽ രണ്ട് ശാസ്ത്ര പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

വാർത്താവിനിമയു മിന്ത്രാലയം സെക്രട്ടറി അമിത് ഖരെ ദൂരദർശൻ സിഇഒ ശശി ശ്ലേഖ്ർവെമ്പതി ദൂരദർശൻ ഡയറക്ടർ ജനറൽ സുപ്രിയ സാഹൂ തൂടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു

അഞ്ച് ദിവസം നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് വോട്ടെടുപ്പ് നടക്കുന്നത്

എന്നാൽ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്ത് പോകാനുള്ള ബ്രിട്ടന്റെ തീരുമാനത്തിൽ ശക്തമായ എതിർപ്പാണ് നിലവിലുള്ളത് പാർലമെന്റംഗങ്ങളുടെ തീരുമാനമനുസരിച്ചാവും ബ്രക്സിറ്റിന്റെ ഭാവി

കടുത്ത ശൈതൃത്തെ വകവയ്ക്കാതെ ത്രിവേണി സംഗമത്തിലെ പുണ്യസ്നാനത്തിനായി പതിനായിരക്കണക്കിന് തീർത്ഥാടകരാണ് പ്രയാഗ്രാജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്

സ്ത്രീ ഭക്തർക്കായി പ്രത്യേകം ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട് മകരസംക്രാന്തി ഉൾപ്പെടെ ആറ് പ്രധാന സ്നാനദിനങ്ങളാണ് കുംഭ മേളയിൽ ഉള്ളത് അടുത്ത രാജകീയ സ്നാനം ഫെബ്രുവരി നാലിന് മൌനി അമാവാസി ദിനത്തിലാണ്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ബാസിർ എന്ന പേടകമുപയോഗിച്ചുള്ള പയാം എന്ന ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം വിജയകരമായിരുന്നുവെങ്കിലും മൂന്നാം ഘട്ടത്തിൽ റോക്കറ്റിൽ നിന്നും വേർപെട്ടു മാറുന്നതിനുള്ള വേഗത പാലിക്കുന്നതിൽപരാജയപ്പെടുകയായിരുന്നു ദോസ്തി എന്ന മറ്റൊരു ഉപഗ്രഹം വിക്ഷേപിക്കാനും ഇറാൻ പദ്ധതിയിടുന്നതായി വാർത്താവിനിമയ മന്ത്രി മുഹമ്മദ് ജറോമ്പ്പ് പ്പറ്റഞ്ഞു

അവസാന ഓവറിൽ സിക്സർ നേടിയാണ് മുൻ നായകൻ എം